മുത്തലാഖ് ബിൽ ലോക്സഭ പാസാക്ട്ടി

പ്രധാൻ മന്ത്രി ആവാസ്പ് യോജനയിൻ കീഴിൽ നഗരങ്ങളിലെ പാവപ്പെട്ടവർക്ക് ഒരു് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേറെ വീടുകൾ നിർമ്മിച്ചു ക്ൽകാൻ കേന്ദ്ര അനുമതി

ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻൺ സിംഗിൾസിൽ പി

സിന്ധൂവും സായ് പ്രണീതും ക്വാർട്ടർ ഫൈനലിൽ

കൂടുതൽ വിവരങ്ങളുമായി സുപ്രഭ

രണ്ടു മാസത്തിലേറെ നീണ്ട യുദ്ധത്തിനു ശേഷമാണ് പാകിസ്ഥാൻ കൈവശം വെച്ചിരുന്ന പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇന്ത്യയ്ക്ക് ലഭിച്ചത് ഓർമ്മിക്കുക ആഫ്താദിക്കുക പുതുക്കുക എന്നതാണ് ഇക്കുറി കാർഗിൽ വാർഷികാചരണത്തിന്റെ സന്ദേശം പ്രി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ജമ്മു കാശ്മീരിലെ ഡ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം സന്ദർശിച്ച് വീരമൃത്യു വരിച്ച സൈന്ദിക്ടർക്കും ഉദ്യോഗസ്ഥർക്കും ആദരാഞ്ജലി അർപ്പിക്കും

രാജ്യരക്ഷ്യാ മന്ത്രി രാജ്നാഥ് സിംഗ് കരസേനാ മേധാവി ജനറൽ ബിപിൻ ്റ്റാവത്ത് തുടങ്ങിയവർ ദേശീയ യുദ്ധ സ്മാരകത്തിൽ വിജയത്തീന്റെ അഗ്നിജാല പ്രകാശിപ്പിച്ച് വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു

ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ത്രിദിന ചടങ്ങുകൾ രാജ്യവ്യാപകമായി ഇന്നലെ ആരംഭിച്ചിരുന്നു ന്യൂദൽഹിയിലെ മനേക്ഷാ സെന്ററിൽ യുദ്ധ വിദഗ്ധരും ഉദ്യോഗസ്ഥന്മാരും അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യയ്ക്കെതിരായ നിഴൽയുദ്ധം പാകിസ്ഥാൻ തുടർന്നാൽ സർജിക്കൽ ആക്രമണം തുടങ്ങിയ മുൻകാല അനുഭവമായിരിക്കും ഫലമെന്നും ശ്രീ റാവത്ത് പറഞ്ഞു

സംയുക്തസേന എന്ന ആശയത്തിന് സമയമായതായും ശ്രീ

ചൈനീസ് പ്രധാനമന്ത്രി ഷീ പിങ്ങുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വുഹാനിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചൈനീസ് സേനയ്ക്ക് വൃക്തമായ സന്ദേശം കൈമാറാൻ കഴിഞ്ഞതായും കരസേനാ മേധാവി പ്രതികരിച്ചു

ശബ്ദവോട്ടൊടെയാണ് ബിൽ പാസായത്

അതേസമയം മുത്തലാഖിന് ബില്ലിൽ ശിക്ഷ ഉറപ്പാക്കുന്നതിനെ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി എതിർത്തു ബിൽ ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വച്ചുള്ളതാണെന്ന് ആർ എസ് പി യിലെ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു

ലോക്സഭ നേരത്തെ പാസാക്കിയ ബില്ലിന് ഇന്ന് രാജ്യസഭ അംഗീകാരം നൽകുകയായിരുന്നു കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി ശമ്പളം മറ്റാനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച് നിയമ നിർമ്മാണം നടത്താൻ കേന്ദ്രത്തിന് അനുമതി നൽകുന്നതാണ് പുതിയ ഭേദഗതി എന്നാൽ ആർ ടി ഐ നിയമത്തിന്റെ സ്വയം ഭരണ അവകാശ സ്വഭാവത്തിന് യാതൊരു നിയന്ത്രണങ്ങളും വരുത്താൻ പുതിയ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നില്ലെന്ന് ബില്ലിന്മേലുളള ചർച്ചയ്ക്ക് മറുപടിയായി കേന്ദ്ര സഹമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം പൂർണമായും സംസ്ഥാനങ്ങൾക്ക് നടത്താമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി എന്നാൽ ബിൽ സെലക്ട് കമ്മിറ്റിയ്ക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റ് ആവശ്യം തള്ളി തുടർന്ന് പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ രാജ്യസഭയിൽ വാക്കൌട്ട് നടത്തി

പാർലമെന്ററികാര്യ മന്ത്രിസഭ സമിതിയുടെയാണ് തീരുമാനം

ആർ രമേശ്കുമാർ മൂന്ന് എം

ശങ്കർ തന്റെ പാർട്ടിയായ കെ

എൽ എ അയോഗ്യനാകുമെന്നും ശ്രീ

പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് രണ്ട് കോൺഗ്രസ്സ് എം

അയോഗ്യതാ കാലയളവിൽ ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനാവില്ലെന്നും സ്പീക്കർ പറഞ്ഞു മറ്റ് പതിനാലു പേരുടെ കാര്യം പരിഗണിച്ചുവരികയാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു

ന്യൂഡൽഹിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിസ്ഥാന സൌകര്യങ്ങൾ ഊർജ്ജം നഗരാസൂത്രണം തുടങ്ങിയ വിഭാഗങ്ങളിലെ വെല്ലുവിളികൾ നേരിടാൻ അതിനൂതന ശൃംഖലകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഉപരാഷ്ട്രപതി എടുത്തു പറഞ്ഞു

കപ്പലിലെ ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് വിദേശുകാര്യ സഹമന്ത്രി വി

ഇന്ത്യക്കാരെ ഉടൻ മോചിപ്പിക്കാൻ വേണ്ട നടപടികൾ ഗവൺഫ്മിന്റ് ്നടത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര സ്റ്റ്ദ്ഗ്നിയമം ലംഘിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് ഇറാൻ സേയ്യ ബ്രിട്ടീഷ് കപ്പലിനെ തടഞ്ഞുവച്ചത്

ഹൈഡ്രോകാർബൺ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത സൌദി അറേബ്യൻ മന്ത്രി ചർച്ചയ്ക്കിടെ പ്രത്യേകം പരാമർശിച്ചതായി ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നു

ഇന്ത്യ ഇതിനായി പാകിസ്ഥാനുമായി ബന്ധം സ്ഥാപിച്ചുവരികയാണെന്ന് വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് ഹേഗിലെ അന്താരാഷ്ട്ര കോടതി കുൽഭൂഷൺ ജാദവിന് മതിയായ നയതന്ത്ര പരിരക്ഷ നൽകണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത് സ്വന്തം മണ്ണിൽ തീവ്രവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പ്രസ്താവനയോട് പ്രതികരിക്കവേ തീവ്രവാദ ക്യാമ്പുകൾക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കേണ്ടതായ സമയം ആഗതമായതായി ശ്രീ രവീഷ് കുമാർ പറഞ്ഞു

ശൌചാലയങ്ങൾ ഉപയോഗിക്കുന്നതിന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ലെന്നും ഉത്തരവിൽ പറയുന്നു ഗുവഹത്തി പട്ടണത്തിന്റെ പൊതുവായ ശുചിത്വം പരിഗണിച്ചാണ് നടപടിയെന്ന് കോർപ്പറേഷൻ കമ്മീഷണർ ദേബേശ്യർ മാലാക്കർ പറഞ്ഞു

ഔറംഗബാദ് ജില്ലയിലെ സത്നാദിയ വനമേഖലയിൽ സുരക്ഷാസേന തെരച്ചിൽ നടത്തുന്നതിനിടെയുള്ള ഏറ്റുമുട്ടലിലാണ് നക്സലുകൾ കൊല്ലപ്പെട്ടത്

വി സിന്ധുവും ബി

എന്നാൽ ഇന്ത്യയുടെ എച്ച്

പ്രണോയിക്ക് ഇന്നലെ ടോക്കിയോവിലെ മോശം ദിനമായിരുന്നു

സായ് പ്രണിത് പുരുഷൻമാരുടെ അവസാന എട്ട് റൌണ്ട് മൽസരത്തിൽ ഇന്തോനേഷ്യയുടെ ടോമി സുഖിയാർത്തോയെ നേരിടും

ഈ മാസം ഒന്നിന് യാത്രാരംഭം മുതൽ ഇന്നലെ വൈകിട്ട് വരെ മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ് പേർ ഗുഹയിലെ ശിവലിംഗത്തിൽ സന്ദർശനം നടത്തി

എസ് ഓഫീസർ ഗൌരവ് ഡാഹിയയ്ക്ക് എതിരായി ഒരു സ്ത്രീ ഉന്നയിച്ച പരാതി അന്വേഷിക്കാൻ ഐ

എസ് ഓഫീസർ സുനൈന തോമറിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സമിതിയെ ഗവൺമെന്റ് നിയോഗിച്ചു മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ നിർദ്ദേശമനുസരിച്ചാണിതെന്ന് ചീഫ് സെക്രട്ടറി ഡോ

സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു